വൃത്തിയും പച്ചപ്പുമുള്ള ഭൂമി ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക പരിസ്ഥിതി ദിനത്തിൽ ആഹ്വാനം ചെയ്തു

പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് ഉദ്യോഗ കയറ്റത്തിന് സംവരണം നൽകൂന്ന നടപടികളുമായി മൂന്നോട്ട് പോകാൻ സൂപ്രീംകോടതി കേന്ദ്രത്തിന് അനുമതി നൽകി

ചിദംബരം എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്കുമുന്നിൽ ഹാജരായി

ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് ഇന്ത്യ ആഥിത്യമരുളുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ഈ ആഹ്വാനം നടത്തിയത് പരിസ്ഥിതി സംരക്ഷണ ബോധവത്ക്കരണത്തിന്റെ ഭാഗമായാണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഇന്ന് വൈകിട്ട് ആരംഭിച്ച ചടങ്ങിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് പരിസ്ഥിതി വകുപ്പു മന്ത്രിമാർ ഐകൃരാഷ്ട്ര സംഘടനാ പ്രതിനിധികൾ വിവിധ വൃവസായിക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കുന്നു ് രാജ്പത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രദർശനം പ്രധാനമന്ത്രി മോദി സന്ദർശിക്കും വരും തലമുറ പ്രകൃതിയെ സ്നേഹിക്കുന്നവരാകണമെന്നും അവർക്കും വൃത്തിയും പച്ചപ്പുമുള്ള ഭൂമിയിൽ ജീവിക്കാനും കഴിയുന്നതരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ അദ്ദേഹം ജനങ്ങളോടാവശൃപ്പെട്ടു വൃത്തിയുളള ഭൂമിയെ നിലനിറുത്താനുള്ള പ്രതിബദ്ധതയു ാകണമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തന്റെ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടു പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ പോരാടുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന മുദ്രാവാകൃം

ഡി എ ഗവൺമെന്റ് ഭവനനിർമ്മാണത്തിന് മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ന്യൂഡൽഹിയിൽ പ്രധാൻ മന്ത്രി ആവാസ് യോജനയിലെ ഗുണഭോക്താക്കളായ ഗ്രാമീണ ജനങ്ങളുമായി നമോ ആപ്പിലൂടെ ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം

ഇതിനായി പ്രത്യേക പദ്ധതി തയ്യാറാക്കുകയും ദൌത്യ നിർവ്വഹണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിട്ടു ് സാധാരണക്കാർക്ക് വീട് എന്ന സ്വപ്നം യാഥാർത്ഥൃമാക്കും ഭവന നിർമ്മാണ മേഖലയിൽ നിന്ന് ഇടനിലക്കാരെ ഒഴിവാക്കുകയും അഴിമതിയില്ലാതാക്കുകയും ചെയ്യും

ഇത് സംബന്ധിച്ച് വിവിധ ഹൈക്കോടതികളുടെ വിധികൾ കാരണം ഉദ്യോഗകയറ്റ നടപടികൾ തടസ്സപ്പെട്ടിരിക്കുകയാണെന്ന കേന്ദ്ര ഗവൺമന്റ് വാദം അംഗീകരിച്ചാണ് പരമോന്നത കോടതിയുടെ നിർദ്ദേശം ഉദ്യോഗകയറ്റം നടത്തുന്നതിന് കേന്ദ്രത്തിന് നിയമപരമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ജസ്റ്റിസ് ആദർശ് കുമാർ ഗോയൽ ജസ്റ്റീസ് അശോക് ഭൂഷൻ എന്നിവരടങ്ങിയ ബഞ്ച് ചൂ ിക്കാട്ടി

അധികൃതർ അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തി

കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഒഴിവാക്കാൻ മുൻ ധനമന്ത്രി നേരത്തെ പ്രത്യേക കോടതിയെ സമീപിച്ചിരുന്നു

ശ്രീ ചിദംബരം നൽകിയ ഹർജിയിൽ വിശദീകരണം നൽകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ സമയം ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണിത്

രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ദേശീയ തലത്തിലുള്ള ശ്രമങ്ങൾക്ക് ശക്തി പകരുന്നതായിരുന്നു സമ്മേളനമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിശ്വാസം പ്രകടിപ്പിച്ചു വിവരസാങ്കേതിക വിദ്യയിലധിഷ്ഠിതമായ ആധുനിക സാങ്കേതിക വിദൃ നടപ്പിലാക്കിക്കൊ ുള്ള വൈവിധൃമാർന്ന പുത്തൻ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് രാജ് ഭവനുകൾ മുൻകൈയെടുക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു പരിസ്ഥിതി സംരക്ഷണത്തിന് ആഗോളമായി ചിന്തിക്കുകയും പ്രാദേശികമായി പ്രവർത്തിക്കുകയും അഭികാമ്യമെന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ രാഷ്ട്രപതി ഓർമിപ്പിച്ചു ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു

നരേന്ദ്രമോദി ആപ്പിലൂടെ ആയിരിക്കും ഇത് സംരംഭക സ്റ്റാർട്ടപ്പ് മേഖലയിലുള്ള ചെറുപ്പക്കാരുമായി നേരിട്ട് സംവദിക്കാനുള്ള അത്യപൂർവ്വമായ കൈവന്നിരിക്കുന്നതെന്ന് ശ്രീ മോദി ടിറ്ററിൽ കുറിച്ചു പ്രമുഖ ഇൻകുബേഷൻ കേന്ദ്രങ്ങളിലെ യുവാക്കളും തുടക്കകാരായ സംരംഭകരും നാളെ നടക്കുന്ന സംവാദത്തിൽ പങ്കെടുക്കും ദൂരദർശനിൽ സംപ്രേക്ഷണം ചെയ്യുന്ന നരേന്ദ്രമോദി ആപ്പിന്റെ തൽസമയ സംവാദത്തിൽ പ്രേക്ഷകർക്കും പങ്കെടുക്കാം

കഴിഞ്ഞ നാല് വർഷങ്ങളിലെ തന്റെ മന്ത്രാലയത്തിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കാൻ വിളിച്ച് ചേർത്ത് പത്രസമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം വൃക്തമാക്കിയത് കൂടുതൽ വിവരങ്ങളുമായി ദീപു എസ്

പ്രകോപനമില്ലാതെയുള്ള ഏത് ആക്രമണത്തോടും ഇന്ത്യൻ സൈനിക വിഭാഗങ്ങൾ പ്രതികരിക്കും ജമ്മു കാശ്മീരിൽ റംസാൻ കാലയളവിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് സംബന്ധിച്ച ചോദ്യത്തോട് പ്രതികരിക്കവേ ഗവൺമെന്റ് പ്രഖ്യാപനത്തിൽ ഉറച്ച് നിൽക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു ഭീകരവാദവും ചർച്ചകളും ഒരുമിച്ച് മുന്നോട്ട് പോകില്ലെന്ന് പാകിസ്ഥാനെ ഉദ്ദേശിച്ച് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു

ഫ്രാൻസുമായുളള റാഫേൽ യുദ്ധ വിമാനകരാറിൽ അഴിമതിയുടെ കണികപോലുമില്ല

നിലവിൽ യുദ്ധോപകരണങ്ങളുടെ ലഭ്യതയിൽ ഒരു കുറവുമില്ല

എ ഗവൺമെന്റിന്റെ കീഴിൽ സേനാവിഭാഗങ്ങൾക്ക് വേ ത്ര ധനം അനുവദിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

നിപയിൽ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ മന്ത്രി വിശദീകരിച്ചു

ഇതു സംബന്ധിച്ച നിർദ്ദേശം മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചിട്ടു ്

ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ബംഗ്ളൂരിൽ വെച്ചാണ് ഇത് വിപണിയിലിറക്കിയത്

പിയുമായ ശശിതരൂർ ജൂലൈ ഏഴിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹിയിലെ കോടതി നോട്ടീസ് അയച്ചു

ശശിതരൂരിനെതിരെ നടപടി തുടരാൻ മതിയായ കാരണങ്ങൾ ഉ ന്ന് അഡീഷണൽ ചീഫ് മെട്രോ പോളിറ്റൻ മജിസ്ട്രേറ്റ് സമർവിശാൽ പറഞ്ഞു

രാജ്യത്തിന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിന് മുന്തിയ പരിഗണനയാണ് കർഷകരെയും നൽകുന്നത്